മഴക്കെടുതിയിൽ മൂന്നുമരണം

ചൊവ്വാഴ്ചവരെ കനത്ത മഴക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്ന റിയിപ്പ് മഴക്കെടുതിയിൽ കൊല്ലം തിരുവല്ല തലശേരി എന്നിവിടങ്ങളിലായി മൂന്നുപേർ മരിച്ചു വിഴിഞ്ഞത്തുനിന്നും കൊല്ലം നീണ്ടകരയിൽ നിന്നും മത്സ്യ ബന്ധനത്തിന് പോയ ഏഴ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ എട്ടുപേരെ കാണാതായി കൊല്ലം നീണ്ടകരയിൽ കാറ്റിൽപ്പെട്ട വള്ളം മറിഞ്ഞാണ് മൂന്നു പേരെ കാണാതായത് തങ്കശ്ശേരി നീണ്ടകര അഴീക്കൽ എന്നിവിടങ്ങളിലെ വലിയ തിരമാലകൾ രക്ഷാപ്രവർത്തനത്തെ ഇന്നലെ പ്രതികൂലമായി ബാധി ച്ചു കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രണ്ട് ബോട്ടുകളും ഡോണിയർ വി മാനങ്ങളും ചേർന്ന് തിരച്ചിൽ പുനരാരംഭിക്കും കൊച്ചിയിൽ നിന്നും രണ്ട് കപ്പലുകൾ ഇന്ന് തിരച്ചിലിനായി പുറപ്പെടും എന്ന് ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചു വിഴിഞ്ഞ ത്തുനിന്നുപോയ നാലുപേരെ കണ്ടെത്താൻ ഹെലികോപ്ടർ ഉപയോഗിക്കു ന്നുണ്ടെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ കെ ഗോപാലകൃഷ്ണൻ പറ ഞ്ഞു മീനച്ചിലാറ്റിൽ കിടങ്ങൂർ കാവാലിപ്പുഴക്കടവിൽ ഒഴുകിവന്ന തടി പിടി ക്കാനിറങ്ങിയ ചേർപ്പുങ്കൽ സ്വദേശി മനീഷിനെ കാണാതായി

പനയം ചോനംചിറ കുന്നിൽതൊടിയിൽ വീട്ടിൽ ദിലീപ്കുമാർ ആ ണ് മരിച്ചത് രദേവ്ടക്കു തിരുവല്ല നന്നൂരിൽ മണിമലയാറ്റിൽ മീൻ പിടിക്കാനിറങ്ങിയ പരുത്തി ക്കാട്ടിൽ കോശി വർഗീസ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു

ചിറക്കര അയ്യലത്ത് പ ള്ളിക്കുളത്തിലായിരുന്നു അപകടം രദ്ദേഷ്ടങ കാസർകോട്ട് ഇന്ന് തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാ വസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയ നാട് ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴക്ക് സാധൃതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഈ ജില്ല കളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ മലപ്പുറം കണ്ണൂർ ജില്ലക ളിലും മറ്റന്നാൾ കോട്ടയം മലപ്പുറം കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു

താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി വീടുകൾ ഭീഷണിയിലാണ്

നീലേശ്വരം റെയിൽവെ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്ഥലത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ വെള്ള ത്തിനടിയിലായി തേജസ്വിനി പുഴ കരകവിഞ്ഞതിനാൽ സമീപ പ്രദേശങ്ങ ളിലെ വീടുകളെല്ലാം ഭീഷണിയിലാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ മധു രംപാടിയിലും ഏതാനും വീടുകളിൽ വെള്ളം കയറി

തലശ്ശേരിയിൽ നിർമ്മാണത്തിലിരുന്ന വീട്ട് തകർന്നു

തളിപറമ്പിലും പരിസരങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു

ആറ് വീടുകൾ പൂർണമായും തകർന്നു ഇരുപതോളം വീടുകളിൽ വെള്ളംകയറി

മൂവാറ്റുപുഴയാറിന്റെ ഇരുകരക ളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരമേഖലകളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറ യിച്ചു പെരിയാറും കുട്ടമ്പുഴയും കോതമംഗലം പുഴയും കാളിയാറും കര ദ്ദ കവിഞ്ഞു കുട്ടമ്പുഴ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങിയതിനാൽ ആദി വാസി മേഖലയിലേക്ക് കരമാർഗം യാത്ര തടസ്സപ്പെട്ടു

കാട്ടൂർ അമ്പലപ്പുഴ വലിയഴീക്കൽ എന്നിവിടങ്ങളിലാണ് കടലാക്രമണമുണ്ടായത് നിരവധി വീടുകൾ ഏതുനിമിഷവും കടലെടുക്കുമെന്ന നിലയിലാണ് രദേഷ്ടെടു കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മരം വീണ് രണ്ട് വീടുകൾ തകർന്നു

പിറവം കോട്ടയം റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് പാലച്ചുവട് സ്വദേശി ബിനുവും വെള്ളൂർ ഇരുമ്പയ്ം സ്വദേശി അനന്തുവും മരിച്ചു പൂത്തോട്ടയിൽ പാലത്തിൽ ബൈക്കിടിച്ച് വെള്ളത്തിൽ വീണ് ചേരിൻ ചുവട് സ്വദേശി അർജുൻ മരിച്ചു രദ്ദേഷ്ടങ കനത്ത മഴയും റെഡ് അലർട്ടും കണക്കിലെടുത്ത് കാസർകോട് ജില്ല യിൽ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന ങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി നൽകി

എച്ച്

ഇ പരീക്ഷാബോർഡ് സെക്രട്ടറി അറിയിച്ചു മറ്റ് തിയ്യതികളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല രദ്ദേഷ്ടങ കഴിഞ്ഞ് വർഷമുണ്ടായ പ്രളയത്തിന്റെയും രക്ഷാപ്രവർത്തനങ്ങളു ടെയും നാൾവഴികൾ ഓർമ്മപ്പെടുത്തി സംസ്ഥാനത്ത് ജില്ലകളിൽ ഇന്ന് ജന കീയം ഈ അതിജീവനം സംഗമം സംഘടിപ്പിക്കും പ്രളയാനന്തര പുനരധി വാസ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ സംഗമത്തിൽ പങ്കെടുക്കും മന്ത്രി മാർ ജില്ലകളിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും പ്രളയത്തിൽ വീട് നശിച്ച വർക്കായി നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനവും ഭൂമിയും വീടും നഷ്ടമായവർക്കായി ഗവൺമെന്റ് വാങ്ങി നൽകുന്ന ഭൂമി യുടെ രേഖകൾ കൈമാറലും ചടങ്ങുകളിൽ നടക്കും

ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ നിശ്ച യിച്ച സമയപരിധി കണക്കിലെടുക്കാതെ സഭ വിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച തുടരുകയായിരുന്നു ഇന്നലെ ഉച്ചക്ക് ഒന്നരയ്ക്ക് മുൻപ് വോട്ടെടുപ്പ് നടത്തണമെന്നാണ് ഗവർണർ വാജുഭായ് വാല ആദ്യം മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയത്

എന്നാൽ തിങ്കളാഴ്ച ചേരാനായി രാത്രി സഭ പിരിഞ്ഞത് വോട്ടെ ടുപ്പ് നടത്താതെയാണ് ഇത് പുതിയ നിയമപോരാട്ടങ്ങൾക്കും ഭരണഘടനാ പ്രതിസന്ധിക്കും വഴിവെച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു

തിങ്കളാഴ്ച വോട്ടെടുപ്പ് ഉണ്ടാകുമെന്ന് സ്പീക്കർ കെ

ഒരു കാരണവശാലും വോട്ടെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ ആവില്ലെന്നും ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടുണ്ടെന്നും സഭ പിരിയാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു അതിനിടെ വിശ്വാസപ്രമേയത്തിൽ ചർച്ച നടക്കുന്നതി നിടയിൽ നിയമസഭാ നടപടികളിൽ ഗവർണർ ഇടപെടുകയാണെന്നാരോ പിച്ച് മുഖ്യമന്ത്രി കുമാരസ്ഥാമിയും കോൺഗ്രസും സുപ്രീംകോടതിയെ സമീ പിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം കേരളാ സർവകലാശാല വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി ഉത്തരക്കടലാസുകൾ എസ്

ഐ നേതാക്കളുടെ വീടുകളിൽ നിന്നും കണ്ടെടുത്ത സംഭവത്തിൽ ഗവർണർ അടിയന്തിര തിരുത്തൽ നടപടിക്ക് നിർദ്ദേശം നൽകി ആരോപണങ്ങളിൽ വിശദീകരണം നൽകാൻ പി

സി ചെയർമാൻ എം കെ സക്കീറിനോട് തിങ്കളാഴ്ച എത്താൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്

ആദ്യഘട്ടത്തിൽ കുപ്പിവെള്ളവും ശബരി ഉത്പന്നങ്ങളും വിതരണം ചെയ്യും കോട്ടയം ജില്ലയിലെ റേഷൻ വ്യാപാരികളുടെ യോഗത്തിൽ സംസാരിക്കു കയായിരുന്നു മന്ത്രി രുട്ട്ട്ട്ട്ട്ട്ട്ട്ട പശുവളർത്തലിന് ആവശ്യമായ സഹായങ്ങൾ നൽകി ക്ഷീരകർഷക രെ സംരക്ഷിക്കുക എന്നതാണ് ഗവർണമെന്റ് നയമെന്ന് മന്ത്രി കെ

കന്നുകാലി പ്രജനന നയത്തിന്റെ ഭാഗമായി കർഷകരുമായി നേരി ട്ട് ബന്ധപ്പെടുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഏകദിന പരിശീലനം പാല ക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുട്ട്ട്ട്ട്ട്ട്ട്ട വനംവകുപ്പ് ജീവനക്കാർക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വനത്തിനകത്ത് ഫോറസ്റ്റ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു

പാലക്കാട് വാ ളയാറിൽ പരിശീലനം പൂർത്തിയാക്കിയ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബീ റ്റ് ഫോറസ്റ്റ് ഓഫീസർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പ്രർഡിൽ സല്യൂട്ട് സ്വീകരിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി

ചടങ്ങിനുശേഷം മടങ്ങുക യായിരുന്ന മന്ത്രിയെ യൂണിവേഴ്സിറ്റി കോളജ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കെ

യു പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു ദർവ്വെട്ടറ ഇന്തോനീഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പി വി സിന്ധു സെമിയിൽ പ്രവേശിച്ചു ജപ്പാൻ താരം നൊസോക്കി ഒക്കുഹാരയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സിന്ധു പരാജയപ്പെടുത്തിയത്

രദേഷ്ടെടു അഴിമതിക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വി വേണു പറഞ്ഞു കോഴിക്കോട് കലക്ടറേറ്റിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം

ജില്ലയിൽ മഴ തുടങ്ങിയശേഷം കൊതു കു സാന്ദ്രത വർദ്ധിച്ചതായും ഡെങ്കിപ്പനി പടരാൻ സാധ്യത കൂടുതലാണെന്നും അവർ പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട്ട കാലിക്കറ്റ് സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥി കൾക്കായി തയ്യാറാക്കിയ പുതിയ വെബ് പോർട്ടൽ ബുധനാഴ്ച ഗവർണർ ജസ്റ്റിസ് പി സദാശിവം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഉന്നത വിദ്യാ ഭ്യാസരംഗത്ത് സാമൂഹിക ശാസ്ത്ര മാനവിക വിഷയങ്ങളെ അധികരിച്ച് ധാരാളം പ്രോഗ്രാമുകളും ഇ കണ്ടന്റുകളും പ്പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടു ണ്ട് രുട്ട്ട്ട്ട്ട്ട്ട്ട മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായ നി ർമാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കണ്ണൂരിൽ ചേർന്ന അവലോ കന യോഗം തീരുമാനിച്ചു ഇതിനായി ജനപ്രതിനിധികളുൾപ്പെട്ട സംഘം പദ്ധതി പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കും